സഹായങ്ങളും നൽകുമെന്ന് ക്യേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്

പൂരസ്കാരമായ ചാമ്പ്യൻസ് ഓഫ് ദി ഏർത്ത് പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക്

ഭൂരിപക്ഷം ജനങ്ങളും പുറത്താകുമെന്ന് ആശങ്കയുള്ളതായി മന്ത്രി കെ

മുതൽ തിരുവനന്തപുരത്ത്

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ഭരണഘടനാ ബഞ്ചാണ് വിധി പ്രഖ്യാപിച്ചത് ഭർത്താവ് ഭാര്യയുടെ യജമാനനല്ലെന്നും സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് വില കൽപിക്കണമെന്നും വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നു

ഈ വകുപ്പ് റദ്ദാക്കരുതെന്നും ഇത് വിവാഹബന്ധം തകർക്കുമെന്നും ഹർജി പരിഗണിക്കുന്നതിനിടെ കേന്ദ്ര മന്ത്രിസഭ വാദിച്ചിരുന്നു എന്നാൽ ക്രിമിനൽ കുറ്റമല്ലെങ്കിലും വിവാഹേതര ലൈംഗിക ബന്ധം വിവാഹി മോചനത്തിനുള്ള സിവിൽ കുറ്റമായി കാണാമെന്നും സുപ്രീം ക്യോട്ടതി അറിയിച്ചു രാജ്നാഥ് സിംഗ് പ്രളയക്കെടുതി നേരിടാ്ൻ കേരളത്തിന് എല്ലാ സഹായങ്ങളും നൽകുമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്

ജെ പി സംസ്ഥാന കൌൺസിൽ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് എല്ലാ സഹായങ്ങളും കേന്ദ്രം വാഗ്ദാനം ചെയ്തിട്ടും സംസ്ഥാന സർക്കാർ വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് സംസ്ഥാന കൌൺസിലിൽ അവതരിപ്പിച്ച കരട് പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു

വിശദാംശങ്ങളുമായി ലിഖിത വിജയൻ പദ്ധതിയിൽ ചേർന്നാൽ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം സാധാരണക്കാർക്കും നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രയോജനം നഷ്ടമാകുമെന്ന്മന്ത്രി കെ

ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിന്റെ അടിസ്ഥാനത്തിൽ വളരെ പ്പാവപ്പെട്ടവരെ കണക്കാക്കിയാണ് ആയുഷ്മാൻ ഭാരതിൽ ഉപ്പട്ടോക്താക്കളെ നിശ്ചയിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്

ബാക്കിയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ പദ്ധതിയിൽ നിന്നും പുറത്താകുന്ന സ്ഥിതിയാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന കേരളത്തിന് ഈ പദ്ധതി കടുത്ത സാമ്പത്തിക ഭാരം ഉണ്ടാക്കുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഇക്കാര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായുള്ള ചർച്ചയിലും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ അപാകതകൾ പരിഹരിച്ചശേഷം പദ്ധതിയിൽ ചേരുന്നതിനാണ് കേരളം ആലോചിക്കുന്നതെന്നും ശൈലജ വ്യക്തമാക്കി

ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനും ഫിലിപ്പീൻസ് പരിസ്ഥിതി പ്രവർത്തക ജുവാൻ കാർലിംഗിനുമൊപ്പമാണ് ശ്രീ മോദി പുരസ്കാരം പങ്കുവയ്ക്കുന്നത് മികച്ച സംരംഭക ആശയം എന്ന വിഭാഗത്തിൽ കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം സിയാലിനും പുരസ്കാരം ലഭിച്ചു

പ്രളയക്കെടുതിയെ മനസാന്നിധ്യത്തോടെ നേരിട്ട കേരള ജന്നരിയ്ക്കും കേരളത്തെ നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും പ്പുരസ്കാരം സമർപ്പിക്കുന്നതായി സിയാലിൻ മാനേജിംഗ് ഡയറക്ടർ വി

കുര്യൻ പറഞ്ഞു നിയമസഭ സിറ്റിംഗ് കേരള നിയമസഭയുടെ മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം സംബന്ധിച്ച സമിതിയുടെ സിറ്റിംഗ് കണ്ണൂരിൽ ആരംഭിച്ചു

വയോജനങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിനായി ഏർപ്പെടുത്തിയ നിബന്ധനകൾ പിൻവലിക്കണമെന്നും മുതിർന്ന പൌരന്മാർക്ക് ബസുകളിൽ ഏർപ്പെടുത്തിയ സീറ്റ് സംവരണം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും സിറ്റിംഗിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു

അവശ്യസാധനമല്ലാത്തവയുടെ ഇറക്കുമതി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് വർദ്ധനവ് കഴിഞ്ഞ അർദ്ധരാത്രി മുതൽ പുതുക്കിയ തീരുവ നിലവിൽ വന്നു

നാളെ രാജ്യരക്ഷാ മന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ത്യാഗേറ്റിൽ പരാക്രം പർവ് ഉദ്ഘാടനം ചെയ്യും

കാലം മാറുന്നു എന്ന ചിത്രത്തിന് സംഗിതം നൽകി ചലച്ചിത്ര രംഗത്ത് പ്രവേശിച്ച അദ്ദേഹം പിന്നെ ജനമനസ്സുകളിൽ സംഗിതത്തിന്റെ ഒരു മാസ്മരിക വലയം തീർത്തു വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങൾ പിറന്നു

ഒരു കാലഘട്ടത്തിന്റെ വികാരം മുഴുവൻ മലയാളി മനസ്സുകളിൽ ഇന്നും ഒഴുകുന്നത് ദേവരാജൻ മാസ്റ്ററുടെ ഈണങ്ങളിലൂടെയാണ്

അന്വേഷണവുമായി പൂർണമായി സഹരിച്ചിരുന്നുവെന്നും അറസ്റ്റ് അനാവശ്യമായിരുന്നു വെന്നും ജാമ്യഹർജിയിൽ പറയുന്നു ബ്രിഷപ്പിനെ അടുത്ത മാസം ആറു വരെയാണ് പാല ഒന്നാം ക്ലാസ്റ്റ് മജീസ്ട്രേറ്റ് കോടതി റിമാന്റ് ചെയ്തത്

ഡാമിന്റെ പൂർണ സംഭരണ ശേഷിയിലേക്ക് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഒരു ഷട്ടർ തുറന്നത് ആറു ക്യുമെക്സ് ജലമാണ് ഇപ്പോൾ മൂന്നാറിലെ ആർ

പ്രകൃതിദുരന്തത്തിൽ ഉണ്ടായ വ്യാപക നഷ്ടത്തെക്കുറിച്ചും പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ജില്ല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചും ജില്ലാ കളക്ടർ പ്രതിനിധികളുമായി ചർച്ച നടത്തി ചെറുതോണി പാലം ഗാന്ധിനഗർ കോളനി എന്നിവിടങ്ങൾ സന്ദർശിച്ച സംഘം വിവിധ വകുപ്പ് പ്രതിനിധികളുമായും സംവദിച്ചു

എൽ അഞ്ചാം സീസണിന്റെ മുന്നോടിയായി കൊച്ചിയിൽ നടന്ന ഔദ്യോഗിക ജേഴ്സി പ്രകാശ ചടങ്ങിലാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് മോഹൻലാലിനെ ഗുഡ്വിൻ അംബാസിഡറായി പ്രഖ്യാപിച്ചത്

നിയമസേവന അതോറിറ്റി സെക്രട്ടറി ഫിലിപ്പ് തോമസിനു മുമ്പാകെ രേഖാമൂലമാണ് റെയിൽവെ ഉറപ്പ് നൽകിയത്

ആദ്യമായാണ് ഇന്ത്യൻ സംഘത്തിൽ മലയാളി സാന്നിധ്യമുണ്ടാകുന്നത്

ഹോസ്ദുർഗ് മിനി സിവി സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ കളക്ടർ ഡോ

സജിത് ബാബുവാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തത്